പി സംസ്ഥാന അധ്യക്ഷൻ പി

ശ്രീധരൻപിള്ള ഡി

ഛത്തീസ്ഗഢിൽ ആദ്യ ഘട്ട വോട്ടെടുപ്പ് നാളെ

എൽ ഫുട്ബോളിൽ കൊച്ചിയിൽ വൈകിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും സംസ്ഥാനത്ത് ഓട്ടോ ടാക്സി നിരക്ക് വർധിപ്പിക്കാൻ ശുപാർശ ഇതുസംബന്ധിച്ച് ഗവൺമെന്റ് നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ചതായി മന്ത്രി എ

ശശീന്ദ്രൻ പറഞ്ഞു

ജനങ്ങൾക്ക് താങ്ങാവുന്ന നിരക്ക് വർധന മന്ത്രിസഭ പരിഗണിക്കുമെന്ന് മന്ത്രി സ്വകാര്യചാനലിനോട് പറഞ്ഞു

നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ രണ്ട് ഡ്രൈവർമാർ വേണമെന്ന നിബന്ധന കേന്ദ്ര ഉപരിതല ഗതാഗതമ ന്ത്രാലയം ഒഴിവാക്കി ഇത്തരം വാഹനങ്ങൾക്ക് ബ്രൌൺ കളർ നിർബന്ധമാക്കിയ നിയമഭേദഗതിയും വേണ്ടെന്നുവെച്ചതായി മന്ത്രാ ലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു വാഹനത്തിന്റെ മുമ്പിലും പിന്നിലും നാഷണൽ പെർമിറ്റ് അല്ലെങ്കിൽ എൻ പി എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കണം അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന ടാങ്കറുകൾക്ക് വെള്ളക്കളർ നൽകണമെന്നും മന്ത്രാലയം അറിയിച്ചു

അതിനുമുകളിൽ പഴക്കം വരുന്ന വാഹനങ്ങൾക്ക് ഇപ്പോഴത്തതുപോലെ എല്ലാ വർഷവും ഫിറ്റ്നസ് പുതുക്കണം ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അവ മൂടിയിട്ടു വേണം കൊണ്ടുപോകാനെന്നും മന്ത്രാലയം വ്യക്തമാക്കി തീരുമാനത്തെ ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് സ്വാഗതം ചെയ്തു ഇന്ത്യയിൽ ഏറ്റവും തിരക്കേറിയ നഗരം ബംഗലൂരുവാണെന്ന് കണ്ടെത്തൽ

എസ് ആസ്ഥാനമായ നാഷണൽ ബ്യൂറോ ഓഫ് ഇക്കണോമിക് റിസർച്ച് നടത്തിയ പഠനത്തിൽ ഗതാഗതക്കുരു ക്കിൽ ഒന്നാംസ്ഥാനം കൊൽക്കത്തയ്ക്കാണ്

ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി ജനങ്ങളെ തമ്മിലടിപ്പി ക്കുകയാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആരോ പിച്ചു വർഗീയ പ്രചാരണം നടത്തിയതിന് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും തീർത്ഥാടനം അട്ടിമറിക്കാൻ ഗവൺമെന്റ് ബോധപൂർവം ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

ശബരിമല സന്നിധാനം ആർ

എസ് നിയന്ത്ര ണത്തിലായിരുന്നുവെന്നും ആർ

എസിനെ വളർത്താൻ സി

എം ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വിശാസം സംരക്ഷിക്കുക വർഗീയത തുരത്തുക എന്ന മുദ്രാ വാക്യവുമായി കെ

സി പ്രചാരണവിഭാഗം ചെയർമാൻ കെ മുരളീധരൻ നയിക്കുന്ന പദയാത്ര തിരുവനന്തപുരം പാളയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല പകൽ കമ്മ്യൂണിസം പ്രസംഗിക്കുകയും രാത്രി ബി

പി നേതാക്കളുമായി ചർച്ചനടത്തുകയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്ന തെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി

സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനി മോൾ ഉസ്മാൻ നയിക്കുന്ന യാത്ര വൈകിട്ട് പാലക്കാട് കോങ്ങാട് നിന്നാ രംഭിക്കും

സി പ്രസിഡണ്ട് മുല്ലപ്പളളി രാമചന്ദ്രൻ ഉദ്ഘാ ടനം ചെയ്യും സി പി ഐ എമ്മും ബി ജെ പിയും ചേർന്ന് ശബരിമലയെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കെ പി സിസി വർക്കിംഗ് പ്രസി ഡണ്ട് കെ സുധാകരൻ പറഞ്ഞു കെ പി സി സി നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രക്ക് വയനാട് മാനന്തവാടിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിൽ ബത്തേരി കൽപ്പറ്റ എന്നിവിടങ്ങളിലും വിശ്വാസ സംരക്ഷണയാത്രയ്ക്ക് സ്വീകരണം നൽകി പൊലീസ് രാജ് നടപ്പാക്കി ശബരിമലയെ തകർക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് ബി

പി സംസ്ഥാന അധ്യക്ഷൻ പി

ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തി

എ ശബരിമല സംരക്ഷണ രഥയാത്രയ്ക്ക് എടപ്പാളിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വൈകിട്ട് ഗുരുവായൂരിലാണ് ആദ്യ സ്വീകര ണം

സമ്മേളനത്തിന്റെ പതാക കൊടിമരം ദീപശിഖ ജാഥകൾ വൈകീട്ട് കടപ്പുറത്ത് പൊതുസമ്മേളന നഗരി യിൽ സംഗമിക്കും തുടർന്ന് സ്വാഗതസംഘം ചെയർമാൻ പി മോഹനൻ പതാക ഉയർത്തും പ്രതിനിധി സമ്മേളനം നാളെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി സായ്നാഥ് ഉദ്ഘാടനം ചെയ്യും

ബുധനാഴ്ച സമാപനറാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നെയ്യാറ്റിൻകരയിലെ സനൽകുമാറിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു പൊലീസ് ഉദ്യോഗ സ്ഥൻ പ്രതിയായ കേസിൽ ക്രൈം ബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ഭാര്യ വിജി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ക്രൈം ബ്രാഞ്ച് സംഘം വീട്ടിലെത്തിയെങ്കിലും മൊഴിയെടു ക്കാതെ തിരിച്ചുപോകുകയായിരുന്നുവെന്ന് അവർ ആരോപിച്ചു

സനലിന്റെ ഭാര്യയ്ക്ക് ഗവൺമെന്റ് ജോലി നൽക ണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ബി ഐ ഡയറക്ടർ പദവിയിൽ തിരികെ നിയമിക്കണമെന്ന അലോക് വർമ്മയുടെ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണി ക്കും അലോക് വർമ്മക്കെതിരെ സി ബി ഐ സ്പെഷ്യൽ ഡയറ ക്ടർ രാകേഷ് അസ്താന നൽകിയ അഴിമതിക്കേസിൽ കേന്ദ്ര വിജി ലൻസ് കമ്മീഷന്റെ റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കും കമ്മീഷൻ സമിതിയ്ക്ക് മുമ്പാകെ അലോക് വർമ്മയും അസ്താ നയും കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഛത്തീസ്ഗഢിൽ ആദ്യ ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും

കോൺഗ്രസും ബി

നക്സൽ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഒരു ലക്ഷം സുരക്ഷാസേനാംഗങ്ങളെ നാളെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയ്ക്ക് നിയോഗിച്ചിട്ടുണ്ടെന്ന് ഉന്നത പൊലീസ് ഉദ്യോഗസ്ഥൻ റായ്പൂരിൽ പറഞ്ഞു ഛത്തീസ്ഗഢിലെ ബീജാപൂരിൽ സുരക്ഷാസേനയുമായു ണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു പുലർച്ചെയാണ് ബീജാപൂരിലെ ബദ്ര വന മേഖലയിൽ ഏറ്റുമു ട്ടൽ നടന്നത് ഏറ്റുമുട്ടലിൽ ബി

എഫ് ജവാന് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്

പരിശോധന തുടരുകയാണെന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ റായ്പൂരിൽ പറഞ്ഞു അന്താരാഷ്ട്രതലത്തിൽ ക്രൂഡോയിൽ വില ഗണ്യമായി കുറ യുന്ന സാഹചരൃം ചർച്ചചെയ്യുന്നതിന് പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇന്ന് അബുദാബിയിൽ യോഗം ചേരും

ഐ എസ് എൽ ഫുട്ബോളിൽ കൊച്ചിയിൽ വൈകീട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും ഈ സീസണിൽ രണ്ടാം ജയം തേടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം തട്ടകത്തിൽ കളിക്കിറങ്ങുന്നത് ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി ഇന്ന് ഷില്ലോങ്ങ്ലജോങ്ങ് എഫ്

വൈകീട്ട് അഞ്ചിന് കോഴിക്കോട് കോർപ്പറേഷൻ ഇ

സ്റ്റേഡിയത്തിലാണ് മത്സരം

വൈകീട്ട് ഏഴിന് ചിദംബരം സ്റ്റേഡിയത്തി ലാണ് മത്സരം നേരത്തെ നടന്ന രണ്ട് മത്സരങ്ങളും ജയിച്ച ഇന്ത്യ പരമ്പരയിൽ സമ്പൂർണ ജയം ലക്ഷ്യമിട്ടാണ് അവസാന കളിക്കി റങ്ങുന്നത്

ആദ്യ മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാന്റിനെ തോൽപ്പിച്ചിരു ന്നു

ക്രിക്ക റ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കുകയാണെന്ന് അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു

മാങ്ങാട്ടുപറമ്പിൽ നടക്കുന്ന കണ്ണൂർ സർവകലാശാല ഇന്റർകൊളീജിയറ്റ് കായികമേളയിൽ പുരുഷ വിഭാഗത്തിൽ കാസർകോട് ഗവൺമെന്റ് കോളേജും വനിതാവിഭാഗത്തിൽ മാങ്ങാട്ടുപറമ്പ് സ്കൂൾ ഓഫ് ഫിസിക്കൽ എജുക്കേഷനും മുന്നേറ്റം തുടരുന്നു പുരുഷ വിഭാഗത്തിൽ സ്കൂൾ ഓഫ് ഫിസി ക്കൽ എജുക്കേഷനും വനിതാവിഭാഗത്തിൽ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജും രണ്ടാം സ്ഥാനത്തുണ്ട് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കെ

പി ഡെപ്യൂട്ടി കമാന്റന്റും ഇന്റർനാഷണൽ അത്ലറ്റുമായ റോയ് ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും കണ്ണൂർ ലുബ്നാഥ് ഷാ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആര്യബന്ധു പുരസ്കാരം ഇന്ന് സമ്മാനിക്കും ഗവർണർ പി സദാ ശിവം വൈകിട്ട് കണ്ണൂർ ചേമ്പർ ഹാളിൽ ഡോ

കോഴിക്കോട് മുക്കം സർവീസ് സഹകരണബാങ്ക് തെരഞ്ഞെ ടു പ്പിനിടെ സംഘർഷമുണ്ടായി

എഫ് യു

പ്രവർത്തകരെ പിരിച്ചുവിടാൻ പൊലീസ് ലാത്തി വീശി സ്ഥലത്ത് കൂടുതൽ പൊലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് വാഗ്ദാനങ്ങൾ നൽകി ഭരണകൂടം ജനങ്ങളെ വഞ്ചിക്കുകയാ ണെന്ന് സാമൂഹ്യപ്രവർത്തക മേധാപട്കർ പറഞ്ഞു നാളത്തെ ലോകം നമ്മുടേത് യുവജനകൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള പദ യാത്ര കാസർകോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ പ്രളയത്തിൽ ആയിരക്കണക്കിന് ജീവൻ രക്ഷിച്ച മത്സ്യത്തൊ ഴിലാളികൾക്ക് ബോട്ടുകൾ നന്നാക്കികൊടുക്കാമെന്ന് പറഞ്ഞെ ങ്കിലും ഗവൺമെന്റ് ചെയ്തില്ല എൻഡോസൾഫാൻ ദുരന്ത ത്തിലും വയനാട്ടിലെ ആദിവാസികളുടെ കാര്യത്തിലും വാഗ്ദാ നലംഘനമാണ് നടക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എക്സ്പ്രസ് ഹൈവേ പോലുള്ളവയെ എതിർക്കുന്ന സി

എം അവർ ഭരിക്കുന്ന കേരളത്തിൽ അവ നടപ്പിലാക്കുകയാ ണെന്നും മേധാപട്കർ കുറ്റപ്പെടുത്തി

നവോത്ഥാന ചരിത്ര പ്രദർശനം മന്ത്രി രാമചന്ദ്രൻ കടന്നപള്ളി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച സംഘാടക സമിതി രൂപീകരണയോഗം വൈകീട്ടി മട്ടന്നൂരിൽ മന്ത്രി ഇ പി ജയരാജന്റെ അധ്യക്ഷതയിൽ ചേരും

കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇന്ന് സമാപിക്കും സമാപനച്ചടങ്ങിൽ ഗോവ ഗവർണർ മൃദുല സിൻഹ മുഖ്യാതിഥി യാകും